നരേന്ദ്രമോദി കർഷകർക്കായി ആഗോള നിലവാരത്തിലുള്ള വിപണി സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി

പൊട്ടിത്തെറിയിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു

പരാജയപ്പെടുത്തി

സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹര്യാനയിലെ റോത്തകിൽ റെയിൽവേ നവീകരണ കേന്ദ്രത്തിന് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നേരത്തെ സ്വതന്ത്രസമര സേനാനിയും കർഷക നേതാവുമായിരുന്ന ദീനബന്ധു സർ ഛോട്ടു റാമിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാവരണം ചെയ്തു

ഉത്തർപ്രദേശിൽ ബസ്തി ജില്ലയിൽ ഹൈവേകൾക്കും ജലഗതാർത്ത പാതകൾക്കും തറക്കല്ലിട്ട് സംസാരിക്കുവേയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്

ഉത്തർപ്രദേശിലെ എല്ലാ ഗ്രാമങ്ങളെയും ഇരട്ടപ്പാതകളുമായി ബന്ധിപ്പിക്കാൻ ര ് ലക്ഷം കോടി രൂപ ചെലവിടും

ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയായിരുന്നു അപകടമു ായത്

ന്യായീകരണമില്ലാത്തതും യുക്തിയില്ലാത്തത്തിന്റെ വിധിയാണ് ഭരണഘടന ബെഞ്ച് പുറപ്പെടുവിച്ചതെന്നാണ് പുനപരിശോധന ഹർജിയിൽ ചൂ ിക്കാട്ടിയത് ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗോഗോയിയുടെ നേതൃത്വത്തിലുള്ള ബഞ്ച് മുമ്പാകെയാണ് പുനപരിശോധന ഹർജി പരിഗണനയ്ക്ക് വന്നത് മുൻ ചീഫ് ജസ്റ്റീസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടന ബഞ്ചാണ് ഭൂരിപക്ഷ വിധിയിലൂടെ ശബരിമല ക്ഷേത്രത്തിൽ പ്രായഭേദമന്യേ സ്ത്രീപ്രവേശനം അനുവദിച്ചത് സ്ത്രീകളെ വിലക്കുന്നത് ലിംഗ വിവേചനമാണെന്നും ഹിന്ദു സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്നും വിധിയിൽ ചൂ ിക്കാട്ടിയിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഉദയ്കുമാർ

ഇന്ത്യയിൽ പല പരിഷ്ക്കാരങ്ങളും സമീപ വർഷങ്ങളിൽ കൊ ചരക്ക് സേവന നികുതി പാപ്പരത്ത കോഡ് വ്യാപാര വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ നടപടി സ്വീകരിക്കൽ വിദേശനിക്ഷേപം സ്വീകരിക്കാനുള്ള നടപടികൾ ലഘൂകരിക്കുക എന്നിവ റിപ്പോർട്ടിൽ ചൂ ിക്കാട്ടുന്നു

രാജ്യത്തു ായ സാമ്പത്തിക പരിഷ്ക്കരണങ്ങൾ കാരണമാണിത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വാതന്ത്ര്യസമര സേനാനിയും ഭാരത് സ്കൌട്ട് ആന്റ് ഗൈഡ്സിന്റെ കർണാടക ചീഫ് കമ്മീഷണറുമായിരുന്നു വി പി ദീനദയാലു നായിഡു

ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ദേശീയ നിർവ്വഹണ സമിതി യോഗമാണ് തീരുമാനം കൈക്കൊ ത് രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി മഹേഷ് ശർമ്മ പറഞ്ഞു കൂടാതെ ജാലിയൻവാലാബാഗ് കൂട്ടകൊലയുടെ ശതാബ്ദിയും ആചരിക്കും

ഇവയ്ക്ക് ആവശ്യമായ ഫ ് അനുവദിച്ചിട്ടുള് ന്നും അദ്ദേഹം അറിയിച്ചു

ജപ്പാനെ ഏകപക്ഷീയമായ് ഒരു ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്

കൂടാതെ മൂന്ന് വെങ്കലവും ഇന്ത്യ നേടിയിട്ടു ബ്യൂണസ് ഐറിസിൽ നടക്കുന്ന യൂത്ത് ഒളിംമ്പിക്സിൽ ഇന്ത്യയുടെ ജറമി ലാൽറിനുംഗ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ മൂന്ന് വെള്ളി മെഡലുകളും നേടി സ്വർണം നേടിയ ജർമിയെ കായികമന്ത്രി രാജ്വർദ്ധൻ റാത്തോഡ് അഭിനന്ദിച്ചു

ഐ സി എം ആർ നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് രോഗ ബാധസ്ഥിതീകരിച്ചത്

ന്യൂഡ്ൽഹിയിൽ വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ സംബന്ധിച്ച ലോക സമ്മേളനത്തിൽ സംസാരിക്കവേയാണ് അദ്ദേഹം ഇതു പറഞ്ഞത്

ധാരാളം വെല്ലുവിളികളും നിയന്ത്രണങ്ങളും ഉ െ ങ്കിലും രാജ്യത്തെ മുൻനിര തൊഴിൽ ദാതാവാണ് ഇൌ മേഖലയെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊ ് കേന്ദ്ര ഉരുക്ക് മന്ത്രി ചൌധരി ബിരേന്ദ്ര സിംഗ് പറഞ്ഞു

കഴിഞ്ഞ ര ു ദശാബ്ദമായി തൊഴിൽ രംഗത്ത് വർദ്ധിച്ചുവരുന്നിസ്ത്രീ സാനിധ്യം പുരോഗതി കൊ ുവന്നെന്നും പറയുന്നു

ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ അംബാസിഡർ സയദ് അക്ബറുദ്ദിനാണ് പൊതു സമ്മേളനത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ന്യൂഡൽഹിയിൽ ലോക ഇന്ത്യ തപാൽദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം